എസ് സൌകര്യം രാജ്യത്ത് നിലവിൽ വന്നു

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി വാർത്തകൾ വിശദമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ട വോട്ടെടുപ്പ് അൽപ്പ സമയത്തിനകം ആരംഭിക്കും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് വിധി എഴുത്ത്

സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർ പൊയിലിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്

വോട്ടർമാരാണ്

പ്രശ്നബാധിത പോളിങ് ബൂത്തുകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കാൻ പൊലീസിന് നിർദേശം നൽകിയിട്ടുണ്ട്

ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു വരുത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നിർദേശം നൽകി രും വോട്ടെടുപ്പ് ആരംഭിക്കും മുമ്പ് തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണെന്ന് ഞങ്ങളുടെ ജില്ലാപ്രതിനിധികൾ അറിയിച്ചു

രുര പൊതു ബജറ്റിന് മുന്നോടിയായ ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് തുടക്കം കുറിക്കും

ഇന്നലെ വരെ ബാങ്കുകളുടെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴു മുതൽ വൈകീട്ട് ആറു വരെയായിരുന്നു സേവനം ലഭ്യമായിരുന്നത് ഇതോടെ ഈ സേവനം ലഭ്യമാകുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് മുംബൈയിൽ അറിയിച്ചു രുര വള്ളുവക്കോനാതിരി വള്ളുവനാട്ടുകര വല്ലഭ വലിയരാജ കടന്നമണ്ണ കോവിലകത്തെ ജനാർദനൻ രാജ അന്തരിച്ചു

രും സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും പത്ത് ശതമാനം കടന്നു

ജെ പി അധ്യക്ഷൻ ജെ

രുര ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്താൽ കോവിഡിനെ നൂറ് ശതമാനവും തോൽപ്പിക്കാൻ കഴിയുമെന്ന് നടി ഷീല ആകാശവാണിയോട് പറഞ്ഞു

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി

സിയോട് നാലിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയം പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായില്ല

രണ്ട് പോയിന്റ് മാത്രം നേടി കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് ചെന്നൈയിൻ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ഇന്ന് മുംബൈ സിറ്റി എഫ് സി ജംഷഡ്പൂർ എഫ്

ഇന്നലെ നടന്നുപോകുന്നതിനിടെയാണ് ഇരുവരെയും കാട്ടാന കൊലപ്പെടുത്തിയത്

ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയ ശേഷമേ മൃതദേഹങ്ങൾ നീക്കംചെയ്യാൻ അനുവദിക്കൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ കണ്ണൂർ ചെറുപുഴയിലെ ജോസ് ഗിരി കട്ടപ്പള്ളിയിൽ കുത്തേറ്റ് വയോധിക മരിച്ചു

ഇവരുടെ ബന്ധുവാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു രുമ പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും വിജിലൻസ് അറസ്റ്റ് ചെയ്ത അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്